ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലി്കൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

സാമ്പത്തികമാന്ദൃം പരിഹരിച്ച് സംസ്ഥാനത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതാണ് കേരള ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഓക്ലന്റ് ഏകദിനത്തിൽ നൃൂസിലന്റ് ഇന്ത്യയെ പരാജയപ്പെടുത്തി

കൂടുതൽ വിവരങ്ങളുമായി ്തുളസീദാസ് വോയ്സ് ശ്രീലങ്കയുടെ സ്ഥിരത സുരക്ഷ സമൃദ്ധി എന്നിവ ഇന്ത്യയുടെ മാത്രം താത്പര്യമല്ലെന്നും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ ആകെ താത്പര്യമാണെന്നും ശ്രീ

ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ശ്രീ

ഭീകരത നേരിടാൻ സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്

വ്യാപാരവും നിക്ഷേപവും വർധിപ്പിക്കാൻ തീരുമാനമായതായും ശ്രീ

മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം ഇരു രാജ്യങ്ങളും സ്വീകരിക്കും അയൽരാജ്യം ആദ്യമെന്ന ഇന്ത്യൻ നയത്തിന് ശ്രീ മഹീന്ദ രജപക്സെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തി അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ

വിദേശകാര്യ മന്ത്രി എസ്

മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘവും ലങ്കൻ പ്രധാനമന്തിയെ സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതേസമയം പൊതുജനങ്ങൾക്ക് നാളെ ഉച്ചവരെ പ്രിദ്ദർശനം കാണാനാകും

ഇവരെ വീട്ടുതടങ്കലിലേക്ക് മാറ്റി പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാൻ സജ്ജാദ് ലോൺ പിഡിപി നേതാവ് ്വഹീദ് പര എന്നിവരെ ഈ മാസം അഞ്ചിന് കരുതൽ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ച് വീട്ട് തടങ്കലിലാക്കിയിരുന്നു

മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ അനുമതി നൽകുന്നതാണ് പൊതുസുരക്ഷാ നിയമം

അതിരുകളില്ലാത്ത സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ സാധ്യമാണെന്ന് കഴിഞ്ഞദിവസം വാഷിംഗ്ടണിൽ നൽകിയ വിരുന്നിൽ പങ്കെടുക്കവെ അദ്ദേഹം പറഞ്ഞു

ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഇരുരാജ്യങ്ങളിലേയും വ്യവസായികൾ വലിയ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി

ഇന്ത്യൻ ഭാഗത്ത് ഇതുവരെയും നാശ്നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

മൂന്നരവർഷം കൊണ്ട് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ഉറപ്പിച്ച് കാർഷിക വ്യവസായ ആരോഗ്യ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് നിർദേശങ്ങൾ

കാർഷിക മത്സ്യബന്ധന മേഖലകളിൽ വലിയ ഉണർവുണ്ടാക്കാനും ബജറ്റ് സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇന്ത്യയ്ക്കു വേണ്ടി രവീന്ദ്ര ജഡേജയും ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചറി നേടിയെങ്കിലും ഇന്ത്യയെ രക്ഷിക്കാനായില്ല

കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ് വോയ്സ് ചെന്നൈയിൽ വ്യാപാരികളുടെ സംഘടന ചേംബർ ഓഫ് കോമേഴ്സ് ബാങ്കിംഗ് ഇൻഷറൻസ് സഹകരണ രംഗം എന്നിവയിലെ സംഘടനാ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ജനാഭിലാഷം നിറവേറ്റുക സാമ്പത്തിക വികസനം സമൂഹത്തിന്റെ ഉന്നതി എന്നിവ ലക്ഷ്യമിട്ടാണ് ബജറ്റ് തയാറാക്കിയതെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും വിദേശ നാണയ ശേഖരം മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നും ധനമന്ത്രി പറഞ്ഞു

സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് എല്ലാ സംരക്ഷണവും നൽകും ഇവർക്ക് ബാങ്ക് വായ്പകൾ നിഷേധിക്കപ്പെട്ടാൽ അത് ലഭ്യമാക്കാൻ ധനമന്ത്രാലയം സഹായം നൽകും ചൈനയിൽ നിന്ന് രേഖകൾ കിട്ടാത്തതിനാൽ തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് പിഴ ഈടാക്കുന്ന സംഭവത്തിൽ സർക്കാർ ഉടൻ ഇടപെടുമെന്നും ധനമന്ത്രി വെളിപ്പെടുത്തി രാജ്യത്ത് അസംസ്കൃതി ്വസ്തുക്കൾക്ക് അധിക നികുതി ഇല്ലെന്നും ശ്രീമതി നിർമ്മല സ്ട്രീത്രാമൻ പറഞ്ഞു നികുതി റിട്ടേണുകൾ ഫയർ ചെയ്യാൻ ഇല്ക്ട്രോണിക് ഇൻവോയിസ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ചർച്ചയിൽ സംബന്ധിച്ച റവന്യൂ സെക്രട്ടറി ഡോ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നികുതി വരുമാനം പങ്കിടുന്നതിൽ ഒരു സംസ്ഥാനത്തെയും പാർശ്വത്കരിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു

കപ്പലുകളിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സൂക്ഷ്മായി നിരീക്ഷിക്കണമെന്നാണ് നിർദ്ദേശം

സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൂവായിരത്തിലേറെ പേർ നിരീക്ഷണത്തിലാണ്

പോലീസിന്റെ ജനമൈത്രി പ്രവർത്തനങ്ങളിലേയ്ക്ക് കൂടുതൽ ്പേരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് കേരള പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇബ്രാഹിംകുഞ്ഞിന് അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് നൽകും